മൌറീഷൃസ് മെട്രോ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ഉദ്ഘാടനം മൌറീഷ്യസ് പ്രധാനമന്ത്രിയും ചേർന്ന് നിർവ്വഹിച്ചു

മഹാരാഷ്ട്ര നിയമസ്ഭാ തിരഞ്ഞെടുപ്പിൽ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഇന്ന് പിതിക് സമർപ്പിച്ചു ഹരിയാനയിൽ കോൺഗ്രസ് ഇന്ന് ആറ് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചു

മരടിലെ ഫ്ളാറ്റുകൾ ഒഴിയാനുള്ള സമയപരിധി ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും വിട്ടുവീഴ്ചയ്ക്ക് ഇല്ലെന്ന് ജില്ലാ ഭരണകൂടം

വോയ്സ് മൌറീഷ്യസിലെ മെട്രോ എക്സ്പ്രസ് ഒന്നാം ഘട്ടത്തിന്റെയും പുതിയ ഇ

ആശുപത്രിയുടെയും ഉദ്ഘാടനമാണ് ഇരു പ്രധാനമന്ത്രിമാരും ചേർന്ന് നിർവഹിച്ചത് രണ്ട് പദ്ധതികളും മൌറീഷ്യസ് ജനതയ്ക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് ഉദ്ഘാടനം നിർവ്വഹിച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു മൌറീഷ്യസിനോടുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയുടെ തെളിവാണ് ഇതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും സഹകരണ് ചരിത്രത്തിൽ പദ്ധതികളുടെ ഉദ്ഘാടനം പുതിയ അധ്യായം എഴുതിച്ചേർത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു മെട്രോയിലൂടെ വൃത്തിയുള്ളതും കാര്യക്ഷമവും വേഗത്തിലുള്ളതുമായ ഇത് വിനോദസഞ്ചാരത്തെ സഹ്ായിക്കുമെന്നും ശ്രീ

ആശുപത്രിയിലൂടെ് ആരോഗ്യ രംഗത്തിന്റെ ഗുണനിലവാരം ഉയർത്താനാകുമെന്നും ശ്രീ

മൌറീഷ്യസ് ജനത ഇന്ത്യയോട് എക്കാലവും കടപ്പെട്ടിരിക്കുന്നതായി മൌറീഷ്യസ് പ്രധാനമന്ത്രി പറഞ്ഞു വികസന്ത്തിന് ഇന്ത്യയുടെ സഹായം മൌറീഷ്യസിന് ആവശ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വന്ദേഭാരത് എക്സ്പ്രസിലൂടെ ജമ്മുകശ്മീരിലെ ആത്മീയ വിനോദ സഞ്ചാരം ശക്തിപ്പെടുമെന്നും ആഭ്യന്തരമന്ത്രി അഭിപ്രായപ്പെട്ടു

ശനിയാഴ്ച മുതൽ വന്ദേഭാരത് എക്സ്പ്രസ് ഓടിത്തുടങ്ങും

വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകർക്ക് പുതിയ ട്രെയിൻ സർവ്വീസ് ഏറെ പ്രയോജനം ചെയ്യും വൈഷ്ണോ ദേവി ഭക്തർക്കുള്ള നവരാത്രി സമ്മാനമാണ് വന്ദേഭാരത് എക്സ്പ്രസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ടിറ്ററിൽ കുറിച്ചു

ഇതിന് വേണ്ടി ഗവൺമെന്റ് നിരവധി പദ്ധതികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു മുതിർന്ന പൌരന്മാരുടെ വാക്കത്തോൺ ന്യൂഡൽഹിയിൽ ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീ

അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി രാഷ്ട്രീയ വയോശ്രീ യോജനയിലൂടെ വയോജനങ്ങൾക്കായി വീൽചെയർ ശ്രവണസഹായി കണ്ണടകൾ ഉൌന്നുവടി മുതലായവ വിതരണം ചെയ്തുവരുന്നതായും മന്ത്രി പറഞ്ഞു

മരടിലെ ഒഴിപ്പിക്കൽ നടപടികളുടെ ചുമതലയുള്ള സ്നേഹിൽ കുമാർ ഐ

ഇതിൽ ഒരു വിട്ടു വീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ജില്ലാഭരണകൂടവും അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട് ഗവൺമെന്റ് അനുവദിച്ച സമയപരിധി അവസാനിക്കുന്നതോടെ താൽക്കാലികമായി പുനഃസ്ഥാപിച്ച വെള്ളവും വൈദ്യുതിയും വിച്ഛേദിക്കും ഫ്ളാറ്റുകൾ ഒഴിയുന്ന ്കാര്യത്തിൽ ഗവൺമെന്റ് മാനുഷിക പരിഗണന കാട്ടണമെന്ന് ഫ്ളാറ്റ് ഉടമകൾ ആവശ്യപ്പെട്ടു നിയന്ത്രിത സ്ഫോടന ത്തിലൂടെ ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള നഗരസഭാ നീക്കത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു

ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്ഗരിയെ കണ്ട് ചർച്ച നടത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് ധാരണാപത്രം ഒപ്പുവച്ചത്

വിവിധ രാഷ്ട്രീയ കക്ഷികളിലെ പ്രമുഖർ ഇന്ന് പത്രിക സമർപ്പിച്ചു

ജെ

മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രകാന്ത് പാട്ടീൽ പൂനെയിലെ കൊത്രൂഡ് മണ്ഡലത്തിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

ജെ

യിൽ നിന്നുള്ള മന്ത്രിമാരായ പങ്കജ മുണ്ഡെ ഗിരീഷ് മഹാജൻ സുരേഷ് ഖാഡേ സുഭാസ് ദേശ്മുഖ് തുടങ്ങിയവർ ഇന്ന് പത്രിക സമർപ്പിച്ചവരിൽ പ്രമുഖരാണ് മുൻമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പൃഥിരാജ് ചവാൻ കറാഡ് സൌത്തിൽ ജനവിധി തേടും സിറ്റിംഗ് എം എൽ എ അമിത് ദേശ്മുഖും സഹോദരൻ ധീരജ് ദേശ്മുഖും ലാത്തൂർ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കും

സി

യുടെ സിറ്റിംഗ് എം

ജിതേന്ദ്ര അവ്ഹാദിന്റെ പത്രികാ സമർപ്പണത്തിന് പാർട്ടി അധ്യക്ഷൻ ശരത് പവാർ നേരിട്ടെത്തി നിയമസഭാ പ്രതിപക്ഷ നേതാവ് ധനഞ്ജയ് മുണ്ടയെ ആണ് പങ്കജ മുണ്ടെയെ നേരിടാൻ വേണ്ടി എൻ സി

മുൻ സിക്കിം ഗവർണർ ശ്രീനിവാസ് പാട്ടീലും മഹാരാഷ്ട്ര മുൻമുഖ്യമന്ത്രി സുശീൽകുമാർ ഷിൻഡേയുടെ മകളും സിറ്റിംഗ് എം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

വേണു സിംഗ്ല അഗർവാൾ അംബാലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാകും

അഞ്ചിടത്തും സമയ പരിധി പ്രമുഖ മുന്നണികളുടെയെല്ലാം സ്ഥാനാർത്ഥികളുടെ പത്രിക അംഗീകരിച്ചിട്ടുണ്ട് എല്ലായിടത്തും പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു

എക്സ് മീഡിയ അഴിമതി കേസിൽ മുൻ ധനമന്ത്രി പി

കസ്റ്റഡി നീട്ടിനൽകണമെന്നുസില്ലി ഐ യുടെ ആവശ്യം പരിഗണിച്ചാണിത്

ബി ഐ

ഈ മാസം മഹാബലിപുരത്ത് നടക്കുന്ന നയതന്ത്ര ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇരു നേതാക്കളും എത്തുന്നത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് അനുമതിയില്ലാതെ ഫ്ളക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് തമിഴ്നാട് ഗവൺമെന്റ് നിരോധിച്ചിരുന്നു

ജെ

ജമ്മുവിൽ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലാണ് പാർട്ടി വക്താവ് അനിൽ ഗുപ്ത ഈ ആവശ്യം ഉന്നയിച്ചത്

ഫറൂഖ് അബ്ദുള്ളയെയും വൈസ് പ്രസിഡന്റ് ഒമർ അബ്ദുള്ളയെയും കാണാൻ മുതിർന്ന പാർട്ടി നേതാക്കളെ അനുവദിക്കണമെന്ന് ഗവർണർ സത്യപാൽ മാലിക്കിനോട് ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് ആവശ്യപ്പെട്ടു ജമ്മുവിൽ പാർട്ടി നേതാക്കളുടെ യാത്രകൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിച്ചശേഷം നടന്ന യോഗത്തിൽ ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പാർട്ടി വിശദമായി വിലയിരുത്തുമെന്ന തീരുമാനമുണ്ടായി